വികസനത്തിനുള്ള കേന്ദ്ര ശ്രമങ്ങൾക്ക് പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് തടസം സൃഷ്ടിക്കുന്നതായി പ്രധാനമന്ത്രി

ഇന്ത്യ ന്യൂസിലന്റ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിന് വെല്ലിംഗ്ടണിൽ തുടക്കം

വിവിധ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവ്വഹി ക്കും വിശദാംശങ്ങളുമായി നന്ദകുമാർ

ജമ്മു ശ്രീനഗർ ലേ എന്നിപിട്ടങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വിവിധ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും നടത്തും ശ്രീനഗറിലെ ദാൽ തടാകവും പ്രധാനമന്ത്രി സന്ദർശിക്കും

ജമ്മുവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ വട ക്കൻ മേഖല ക്യാമ്പസ് കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും

ലഡാക്ക് മേഖലയിലെ ആദ്യത്തെ സർവകലാശാലയാണിത്

സജ്വാളിൽ ചിനാബ്നദിയുടെ മുകളിലൂടെ പോകുന്ന പാലം ഇരട്ടി പ്പിക്കൽ ജോലിയുടെ ശിലാസ്ഥാപന ചടങ്ങും പ്രധാനമന്ത്രി നിർവ ഹിക്കും ലേയിലെ കുശോക് ബകുല റിംപോച്ചെ വിമാനത്താവള ത്തിലെ പുതിയ ടെർമിനലിന്റെ ശിലാസ്ഥാപനവും നിർവ്വഹിക്കും അസം ഗുജറാത്ത് ഹരിയാന ഒഡീഷ മഹാരാഷ്ട്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായും പുതു തായി തിരഞ്ഞെടുക്കപ്പെട്ട സർപഞ്ചുമാരുമായും പ്രധാനമന്ത്രി ആശയ വിനിമയം നടത്തും

സംസ്ഥാനത്ത് ഒരുകോടി അമ്പത് ലക്ഷം കർഷകർ രണ്ട് ക്ഷക്ടറിനു താഴെ കൃഷി ഭൂമിയുള്ളവരാണ്

ഇതിന് സംയോജിത അതിർത്തി കൈകാര്യം ചെയ്യൽ സംവിധാനമുണ്ടാക്കും ഉത്തരബംഗാളിലെ അലിപ്പൂർദ്വാറിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തു സംസാരിക്കവെയാണ് ശ്രീ രാജ്നാഥ് സിങ് ഇക്കാര്യം അറിയിച്ചത്

ജെ പി ഒരുമാസം നീണ്ടുനിൽക്കുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു ജനങ്ങളുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് പ്രകടനപത്രിക ഒരുക്കുന്നത് ഭാരത് കേ മൻ കീ ബാത് മോദി കി ബാത് എന്നാണ് പദ്ധതിയുടെ പേരെന്ന് ബി ജെ പി വക്താവ് സംപീത്പത്ര പറഞ്ഞു ന്യൂഡൂൽഹിയിൽ ബി ജെ പി പ്രസിഡന്റ് അമിത്ഷായും പാർട്ടിയുട്ടെ മൂതിർന്ന നേതാവ് രാജ്നാഥ് സിംഗും പദ്ധതി ഉദ്ഘാടനം ചെയ്യും ജനങ്ങളുടെ ആവശ്യങ്ങൾ തേടിക്കൊണ്ടുള്ള സമീപനമാണ് ബി ജെ പി ഒരുക്കുന്നതെന്ന് രാജ്യസഭ എം

കൊല്ലം പ്രസ് ക്ലബ്ബിന്റെ ഒരു വർഷത്തെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തനരീതിയിൽ കാതലായ മാറ്റങ്ങൾ സംഭവി ച്ചതായും ഇപ്പോൾ കാണുന്ന പ്രവണത മാതൃകാപരമല്ലെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു രണ്ടു ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഇന്നലെ ഡൽഹിക്കു മട ങ്ങി

പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് പാക്കേജ് കുട്ടനാട് പാക്കേജ് പുഴകളുടെ പുനരുജ്ജീവനം തീരദേശ സംരക്ഷണം തുടങ്ങിയവയൊക്കെട്ട പാക്കേജിന്റെ ഭാഗമാകും

പി പ്രളയാനന്തര കേരളത്തിന്റെ ദ്രപുനർനിർമാണത്തിനൊപ്പം ബേക്കൽ മുതൽ കോവളം വരെയുള്ള് ജല്പാത വികസനവും വടക്കുകിഴക്ക് റെയിൽപാതയും ഗ്ലെയിൽ പൈപ്പ്ലൈനും വിമാനത്താവള വികസനവും ഇലക്ട്രിക് ബ്സ്സുകളുടെ വ്യാപനവുമൊക്കെ ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമാണവും വികസന പദ്ധതികളും നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്നായിരുന്നു ചിലർ പ്രചരിപ്പിച്ചിരുന്നത് അത്തരക്കാർക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന പുരോഗതിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ യാഥാർത്ഥ്യമായി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ചന്ദ്രശേഖരൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ഭവന നിർമാണ വായ്പാ കുടിശിക നിവാരണ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭവന നിർമാണ ബോർഡിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള യഥാസമയം അടച്ചു തീർക്കാത്തവരുടെ വായ്പാ തുകയും ഇതുവരെ തിരിച്ചടച്ച തുകയുമുൾപ്പെടെ പരിശോധിച്ചതിനു ശേഷമാണ് ഇങ്ങനൊരു അദാലത്ത് സംഘടിപ്പിക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

രാജ്യത്തെ ബഹുകോടി ദരിദ്രർക്ക് ഗുണം ചെയ്യുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിന്നും പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് പിന്മാറിയ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ജെ പി പ്രവർത്തകരെ കൊല്ലുന്ന ഗവൺമെന്റ് ജനാധിപത്യത്തെ തകർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരിൽ നിന്നും ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക വഴി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്ത് പ്രത്യേക നികുതി സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ശ്രീ

നാലു വർഷം മുമ്പ് പരസ്പരം നോക്കാതിരുന്നവർ ഇപ്പോൾ ആലിംഗനം ചെയ്യുന്നതായി കഴിഞ്ഞ മാസത്തെ പ്രതിപക്ഷ റാലിയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ചിട്ടികളിൽ നിന്നും പ്രതിരോധ കരാറുകളിൽ നിന്നും ധനസമാഹരണം നടത്തിയവർക്ക് ഈ ഗവൺമെന്റിനെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ശ്രീ

രാജ്യത്ത് അഴിമതിയും കള്ളപ്പണവും ഇല്ലാതാക്കാൻ ഈ ഗവൺമെന്റ് വൻതോതിൽ നടപടി ആരംഭിച്ചു കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു എന്നാൽ മുൻകാലങ്ങളിൽ നികുതി വെട്ടിപ്പും വഞ്ചനയും അടക്കം നിരവധി കുറ്റങ്ങൾ നടത്തിയവർ കോടതി കയറിയിറങ്ങുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി

സംസ്ഥാനത്തെ ഗ്രാമീണ ജനങ്ങൾക്ക് വളരെയധികം ഗുണ്ട് ചെയ്യുന്നതാണ് റെയിൽപാതകളുടെ നവീകരണമെന്ന് പൊതുസമ്മേളനുത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ മേഖലയിലെ ചരക്കുനീക്കത്തിനും സഞ്ചാർത്തിനും വൈദ്യുതീകരിക്കപ്പെട്ട റെയിൽപാതകൾ കൂടുതൽ ഗുണകരമായിരിക്കുമെന്നും ശ്രീ

ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ആദ്യ മൂന്ന് മത്സരങ്ങൾ ജയിച്ച് പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യ നാലാം ഏകദിനത്തിൽ പരാജയപ്പെടുകയായിരുന്നു വിരാട് കോഹ്ലിയും എം

ഓസ്ട്രേലിയയുടെ എല്ലിസ്പെറി മെഗ് ലാന്നിങ് എന്നിവരാണ് തൊട്ടുപിന്നിൽ ബൌളർമാരിൽ പൂനം യാദവ് ദീപ്തിശർമ്മ എന്നിവർ ആദ്യ പത്തിലുണ്ട്

നാളെ രാഷ്ട്രപതി വാർഷിക ഉദ്യാന ഉത്സവത്തിന് തുടക്കം കുറിക്കും